കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ്

ഇന്നലെ ആരംഭിച്ചു സമ്മേളനം ഇന്ന് സമാപിക്കും വിശദവിവരങ്ങളുമായി ദേവി പ്രിയ

മികച്ച ഭാവി കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ ഉച്ചുകോടിയുടെ പ്രമേയം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്തി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്

ഇന്ത്യ യുഎസ് സഹകരണം മഹാമാരിക്കുശേഷമുള്ള ലോകത്ത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാര്പി തുടങ്ങിയ വിഷയങ്ങളിൽ ഉച്ചകോടിയിൽ ചർച്ചകൾ നടക്കും

വെർച്ചൽ ഉച്ചകോടിയിൽ ഇന്ത്യ യുഎസ് നിയുതന്തജ്ഞർ ഉന്നത ഉദ്യോഗസ്ഥർ വ്യവസായമേഖലയിൽ നിന്നും സ്മൂഹത്തിലെ വിവിധതുറകളിൽ നിന്നുമുള്ള ചിന്തകർ തുടങ്ങിയവർ പങ്കെടുക്കും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയ്ക് വിർജീനിയ സെനറ്റർ മാർക്ക് വാർണർ തുടങ്ങിയവരും സംസാരിക്കും

യുഎസ് ഇന്ത്യ വ്യാപാരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇന്ത്യ ആശയ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തെ അടിസ്ഥാന സൌകര്യമേഖല സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ ബാങ്കിംഗ് എന്നിവയിൽ നിക്ഷേപം നടത്തിയാൽ മികച്ച ലാഭവിഹിതം നേടാൻ അമേരിക്കൻ നിക്ഷേപകർക്ക് കഴിയും നിക്ഷേപത്തിനുള്ള ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനമാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡുവിന്റെ ചേംബറിലായിരുന്നു പുതിയ അംഗങ്ങൾ സത്യവാചകം ചൊല്ലിയത് മുൻ പ്രധാനമന്ത്രി എച്ച്

ദേവഗൌഡ ബി ജെ പി നേതാക്കളായ ജ്യോതിരാദിത്യ സിന്ധ്യ ദീപക് പ്രകാശ് കോൺഗ്രസ് നേതാക്കളായ ദിഗ്വിജയ സിംഗ് മല്ലികാർജുൻ ഖാർഗെ എ

ഡി എംകെ അംഗം എം എം തമ്പിദുരൈ എൻ

പി അധ്യക്ഷൻ ശരദ് പവാർ കേന്ദ്രമന്ത്രി രാംദാസ് അത്തവാലെ ശിവസേനയിലെ പ്രിയങ്ക ചതുർവേദി എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു

ജെ

ഡി

ഇതിനായി സർക്കാരും പൊതുസമൂഹവും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണ്ഠിന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ന്യൂഡൽഹിയിലെ സി

ജി അഫീസ് പരിസരത്ത് ബാബാ സാഹേബ് ഡോ

ആഗസ്റ്റ് ഒന്നിന് ഈ നിയമം നടപ്പാക്കിയതിലൂടെ സാമൂഹ്യ അസമത്വം അനുഭവിച്ചിരുന്ന മുസ്തിം വനിതകൾക്ക് പുതിയ ഊർജം പകരാൻ കഴിഞ്ഞതായും അദ്ദേഹം ഒരു ലേഖനത്തിൽ വ്യക്തമാക്കി

വ്യോമസേന ക മാൻഡർ മാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വിമത കോൺഗ്രസ് എം എൽ

മാരോട് അയോഗൃരാക്കപ്പെടാതിരിക്കുന്നതിനുള്ള കാരണം കാണിക്കുന്നതിന് നോട്ടീസ് നൽകിയ സ്പീക്കറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു സ്പീക്കറെന്ന നിലയിൽ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ചാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്ന് സ്പീക്കർ പറഞ്ഞു

അസമിൽ പ്രളയത്തിന് നേരിയ ശമനമൂങ്ടാത്യെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ മഴ തുടരുന്നതിനാൽ പ്രളയഭീഷണി നേതീടുന്നു കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ വോയിസ് അസമിൽ ബ്രഹ്മപുത്രയടക്കം നിരവധി നദികളിൽ ജലനിരപ്പ് അപകടകരമായി ഉയർന്നിട്ടുണ്ട്

കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്

ബംങ്ക നളന്ദ ജമുയി ഗയാ ലക്കിസരായ് നവാഡ് ജില്ലകളിലുള്ളവരാണ് മരണത്തിനിരയായത്